പദ്ധതിയ്ക്ക് കേന്ദ്രം ഉന്നതാധികാര മേൽനോട്ട സമിതി രൂപവത്കരിച്ചു

ഈ ദശകത്തിലെ ഏറ്റവും കനത്ത മൺസൂൺ മഴ റോഡ് റെയിൽ ഗതാഗത്തെയും വ്യോമഗത്ത്തെയും സാരമായി ബാധിച്ചിട്ടു ് പൂനെയിലും മതിലിട്ടിഞ്ഞ് ആറ് തൊഴിലാളികൾ മരിച്ചു

ഇത് ഈ മേഖലയിലെ കർഷകർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ പ്രവർത്തന മൂലധനം എളുപ്പത്തിൽ ലഭിക്കാൻ സഹായകമാകും

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് വോയിസ് പദ്ധതി നടത്തിപ്പ് നിരീക്ഷിച്ച് സമിതി ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കും ലോക്സഭയിലെ ചോദ്യോത്തര വേളയിൽ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചതാണിക്കാര്യം ഇതു സംബന്ധിച്ച മന്ത്രിതല സമിതി കഴിഞ്ഞ സെപ്റ്റംബറിൽ റിപ്പോർട്ട് നൽകിയിരുന്നു കാർഷിക വിപ്പണനം താങ്ങുവില നിക്ഷേപച്ചെലവ് മണ്ണിന്റെ ഗുണമേന്മ ജല്സേചനം നഷ്ടസാധ്യത എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും സമിതിയുടെ പ്രവർത്തനം

ഇതുവഴി യൂറിയയുടെ ഇറക്കുമതി കുറയ്ക്കാനാകുമെന്ന് രാസവസ്തു രാസവളം വകുപ്പ് മന്ത്രി ഡി വി സദാനന്ദ ഗൌഡ ലോക്സഭയിൽ രേഖമൂലം മറുപടി നൽകി

രാജ്യസഭ അനുമതി നൽകിയതിനെ തുടർന്നാണ് ബില്ല് പാസായത്

ഇത് സംബന്ധിച്ച ഓർഡ്ഡിന്ൻസിന് പകരമാണ് ബിൽ വിദഗ്ധ ഹോമിയോപ്പതി ഡോക്ടർമാരും ഭരണ വിദഗ്ധരും അടങ്ങുന്നതാണ് ഭരണസമിതിയെന്ന് ബിൽ അവതരിപ്പിക്കവെ ആയുഷ് വകുപ്പ് മത്ത്രി ശ്രീപാദ് യെശോനായിക് പറഞ്ഞു രാജ്യത്തെ ഓരോ ജില്ലയിലും അമ്പത് പേരെ കിടത്തി ചികിത്സിക്കാൻ സൌകര്യമുള്ള ആയുഷ് ആശുപത്രികൾ സ്ഥാപിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു

ഡി

ഉജാല പദ്ധതിവഴി മൂന്ന് ഘട്ടത്തിലുള്ള ഗുണമേന്മാ പരിശോധനയ്ക്ക് ശേഷമാണ് എൽ

ബൾബുകൾ വിതരണം ചെയ്യുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പദ്ധതി മുഖേന വിതരണം ചെയ്യുന്ന എൽ

ഡി ബൾബുകൾ വില്പന തീയതി കഴിഞ്ഞ് ഒരു വരഷത്തിനുള്ളിൽ കേട് വരികയാണെങ്കിൽ അവ സൌജനൃമായി മ്റ്റ്റി നൽകുമെന്നും ശ്രീ സിംഗ് അറിയിച്ചു

ഈ മേഖലകളുടെ സന്തുലിതമായ വികസനം ഉറപ്പ് വരുത്താനാണ് ഗവൺമെന്റ് ശ്രമമെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായി ലോക്സഭയിൽ രേഖാമൂലം മറുപടി നൽകി റോഡ് വികസനം പാലം നിർമ്മാണം സുരക്ഷിതമായ കുടിവെള്ള ലഭ്യത ആരോഗ്യ സംരക്ഷണം കൃഷി എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് പദ്ധതിയനുസരിച്ച് ഏറ്റെടുക്കുക എന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ പദ്ധതിയിലൂടെ ജീവിത നിലവാരം ഉയർത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷ ഭീകരവിരുദ്ധ നടപടികൾ കള്ളക്കടത്ത് തടയൽ മാനുഷിക സഹകരണം ആവശ്യമായ മറ്റു മേഖലകൾ എന്നിവയിലൂന്നിയുള്ള സഹകരണ പ്രവർത്തനങ്ങൾക്ക് നിയമം കൂടുതൽ സഹായകമാകും

രാജ്യസഭയിലെ ശൂന്യവേളയിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ട് ആണ് ഇന്ന് കേന്ദ്ര നിലപാട് വൃക്തമാക്കിയത് ഇതിന് പ്രത്യേക നടപടിക്രമങ്ങളു ന്നും പാർലമെന്റിനാണ് ഇക്കാര്യത്തിൽ പരമാധികാരമെന്നും അദ്ദേഹം വ്യക്തമാക്കി

ധ്യഭൂബില്ലായി അവതരിപ്പിച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്നു പ്രാദ്യത്തിന്മേലാണ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്

പാർലമെന്റ് ലൈബ്രറി മന്ദിരത്തിൽ കൂടിയ ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം പാർലമെന്ററി കാര്യ മന്ത്രി പ്രഹ്ളാദ് ജോഷി അറിയിച്ചതാണ് ഇക്കാരൃം ബി ജെ പിയുടെ മിക്കവാറും എല്ലാ മുതിർന്ന നേതാക്കളും രാജൃവൃാപകമായി നടക്കുന്ന അംഗത്വ വിതരണോദ്ഘാടന പ്രവർത്തനങ്ങളിൽ പങ്കു ചേരുമെന്നും പറഞ്ഞു ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെടുന്നവർ അംഗത്വ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കു ചേരുമെന്നും ശ്രീ ജോഷി അറിയിച്ചു സഭാ സമ്മേളനങ്ങളിൽ എം പിമാരുടെ ഹാജർ പ്രധാനമാണെന്ന് ശ്രീ നരേന്ദ്രമോദി ഊന്നിപ്പറഞ്ഞിട്ടു ന്നും പാർലമെന്റെന്നാൽ യൂണിവേഴ്സിറ്റിയ്ക്ക് തുല്യമാണെന്നും ഏവർക്കും പഠിക്കാനുള്ള ഒരവസരമാണ് സഭ നൽകുന്നതെന്നും ഉള്ള കാര്യം ശ്രീ മോദി പറഞ്ഞിട്ടുള്ളതായും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു ഗവണ്മെന്റിന്റെ നേട്ടങ്ങൾ സാധാരണക്കാരനിലെത്തണമെന്നും എം പിമാർ അവരവരുടെ മണ്ഡലങ്ങളിൽ നിന്നും ബജറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉറപ്പായും ശേഖരിക്കണമെന്നും മന്ത്രി പറഞ്ഞു

സമിതിയുടെ സാമ്പത്തിക ് സ്ഥിതീയെപ്പറ്റി വലിയ ആശങ്കയാണ് നിലവിലുള്ളത് സമിതിയുട്ടെ പ്രവർത്തനങ്ങൾക്ക് സുസ്ഥിരമായ സാമ്പത്തിക സഹായ് ഉറ്പ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു പാലസ്തീൻ അഭയാർത്ഥികളെ സഹായിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ദുരിതാശ്ചാസ നിധിയ്ക്കും മറ്റ് പ്രവർത്തക സമിതിക്കും വേ ിയുള്ള വാർഷിക സാമ്പത്തിക സഹായം ഇന്ത്യ വർദ്ധിപ്പിച്ചതായി യു എന്നിലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധി കെ നാഗരാജു അറിയിച്ചു

ഗവേഷണ പ്രവർത്തനങ്ങൾക്കുള്ള നിക്ഷേപത്തിന് നികുതിയിളവ് കോർപ്പറേറ്റ് നികുതിയിളവ് നിക്ഷേപത്തിന് മൂലധന നികുതിയിളവ് വാണിജ്യ വകുപ്പിന് കൂടുതൽ ബജറ്റ് വിഹിതം എന്നീ ആവശ്യങ്ങളും മുന്നോട്ട് വച്ചിട്ടു ് കയറ്റുമതി മേഖലയിൽ അധിക തൊഴിൽ സൃഷ്ടിക്ക് നികുതിയിളവ് വേണമെന്നും ആവശ്യപ്പെട്ടിട്ടു ്

ഇന്ത്യയ്ക്കായി രോഹിത് ശർമ്മ സെഞ്ചറി നേടി

ഇതോടെ ഒരു ലോകകപ്പിൽ കൂടുതൽ സെഞ്ചുറികളെന്ന ശ്രീലങ്കൻ താരം കുമാർ സംഗക്കാരയുടെ റെക്കോർഡിനൊപ്പമെത്തി രോഹിത് അർദ്ധ സെഞ്ചുറി തികച്ച് പുറത്തായ കെ

ഈ മത്സരം ജയിച്ചാൽ ഇന്ത്യ സെമിയിലെത്തും ഇന്ത്യയോട് തോറ്റാൽ ബംഗ്ലാദേശ് സെമി കാണാതെ പുറത്താകുകയും ചെയ്യും

കയ്യടക്കിയ അധികാരം സൈനിക ജനറൽമാർക്കെതിരെ നടക്കുന്ന സമരം ഒരു മാസം പിന്നിടുകയാണ്